വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു

ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്

ലോകത്തു തന്നെ കോവിഡ് മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കോവിഡ് ബാധിച്ചതായി സെറോളജിക്കൽ സർവ്വേ

കൂടുതൽ പരിശോധന നടത്താനുള്ള ശേഷി കൈവരിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഐ

കൂടുതൽ ലാബുകൾ സജ്ജീകരിക്കുക കൂടുതൽ ആർ

ആർ മെഷീനുകൾ ഉപയോഗിക്കുക ജില്ലാ ആശുപത്രികൾക്കും ആർ

ആർ മെഷീൻ ലഭ്യമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലിയും സംസ്ഥാനങ്ങൾക്ക് നൽകിയത് കൂടുതൽ പരിശോധന ക്ട്രിന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും നിലവിലെ കേന്ദ്രങ്ങളുടെ ശേഷി വർധിപ്പിക്കാനുമാണ് നിർദ്ദേശം

ഇത്തരം മാസ്കുകൾ കൊണ്ട് കൊറോണ വൈറസ് വ്യാപനത്തെ പൂർണമായി പ്രതിരോധിക്കാനാവില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു

ഇ മെയിൻ എൻഡിഎ പരീക്ഷകൾ ഒരേ ദിവസം നടത്തില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക് പറഞ്ഞു

കോവിഡ് പടർന്ന് പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം

വിദ്യാർത്ഥികളിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക വൈകാരിക പിന്തുണ ഉറപ്പു വരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ആത്മ നിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി പദ്ധതി ആവിഷ്ക്കരിച്ചിരിക്കുന്നത്

എൽ എ

അതുവരെ എം എൽ എ മാർക്കെതിരെ നടപടി എടുക്കരുതെന്നും കോടതി സ്പീക്കർക്ക് നിർദേശം നൽകി

ശ്വാസകോശ രോഗബാധിതനായി ല്ക്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

ജല ഗതാഗതത്തിലെ സുരക്ഷയും സൌകര്യവും കണക്കിലെടുത്താണ് യാത്രാപാതകൾ വിഭജിക്കാൻ തീരുമാനിച്ചത്

ഇരുമ്പും ധാന്യങ്ങളും അടങ്ങിയ നാല് കണ്ടയിനറുകളാണ് പരീക്ഷണാർത്ഥം ഓടിയ ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്

തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ പൊഴിയൂർ സ്വദേശിക്കും കരമനയിൽ പ്രിീക്ഷ എഴുതിയ കരകുളം സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരീച്ചത് കരകുളം സ്വദേശിക്ക് നേരത്തെ രോഗ ലക്ഷണം ഉണ്ട്ടായിരുന്നതിനാൽ പ്രത്യേക മുറിയിലാണ് പരീക്ഷ എഴുതിയ്ത് പൊഴിയൂർ സ്വദേശിക്കൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാ്ർത്ഥീകളെ നിരീക്ഷണത്തിലാക്കാൻ നടപടികൾ സ്വീകരിച്ചു